കുമ്മനം രാജശേഖരൻ പി

കുഞ്ഞാലിക്കുട്ടി ഇ

മുഹമ്മദ് ബഷീർ എന്നിവർ ഇന്ന് പത്രിക നൽകും ശബരിമല സ്ത്രീ പ്രവേശന വിഷയവും ഭക്തർക്ക് നേരെയു ണ്ടായ അതിക്രമങ്ങളും തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമാ ക്കുമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി

വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കാര്യത്തിൽ അവ്യ ക്തത തുടരുന്നു മത്സരിച്ചേക്കില്ലെന്ന അഭ്യൂഹം ശക്തം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ വേതനം പുതുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകി സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില ഉയർന്നേക്കും അതീവ ജാഗ്രത പുലർത്താൻ ദുരന്ത നിവാരണ അതോറിറ്റി മുന്ന റിയിപ്പ് നൽകി ൾ ൽ ൾ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പത്രികാ സമർപ്പണ ത്തിന്റെ ആദ്യ ദിവസമായ ഇന്നലെ എട്ട് സ്ഥാനാർത്ഥികൾ നാമ നിർദേശ പത്രിക നൽകി തിരുവനന്തപുരം മണ്ഡലത്തിൽ രണ്ടും ആറ്റിങ്ങൽ കൊല്ലം ഇടുക്കി ചാലക്കുടി വയനാട് കണ്ണൂർ മണ്ഡല ങ്ങളിൽ ഓരോ പത്രികയുമാണ് സമർപ്പിച്ചത് പത്രിക നൽകിയവരിൽ നാലുപേർ സ്ത്രീകളാണ് ആദ്യ ദിവസം ഇടുക്കിയിലെ ഇടതുപക്ഷ സ്വതന്ത്രൻ ഒഴികെ പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികളാരും പത്രിക നൽകിയിട്ടില്ല ഇന്ന് തിരുവനന്തപുരത്തെ എൻഡിഎ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ പത്രിക സമർപ്പിക്കും മലപ്പുറത്ത് മുസ്തീം ലീഗ് സ്ഥാനാർത്ഥി പി

കുഞ്ഞാലിക്കുട്ടിയും പൊന്നാനിയിൽ ഇ

മു ഹമ്മദ് ബഷീറും പത്രിക നൽകും ശബരിമല സ്ത്രീ പ്രവേശന വിഷയവും അയ്യപ്പ ഭക്തർക്ക് നേരെ യുണ്ടായ അതിക്രമങ്ങളും ലോക്സഭാ തെർഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമാക്കുമെന്ന് ബിജെപി സംസ്ഥാന് പ്രസിഡന്റ് പി

ശ്രീധ രൻപിള്ള തിരുവനന്തപുരത്ത് വ്യക്തമാക്കി ഈ വിഷയം പ്രചാരണ ത്തിന് ഉപയോഗിക്കില്ലെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് അറി യിച്ചതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് ശരിയ ല്ലെന്നും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിക്കും ഓരോ പാർട്ടി പ്രവർത്തകനും ശബരിമല വിഷയം പ്രചാരണത്തിന് ഉപയോഗിക്കാ മെന്നും അദ്ദേഹം പറഞ്ഞു നിയമം അനുവദിക്കുമെങ്കിൽ പുതിയ നിയമ നിർമ്മാണം നടത്തി ശബരിമലയിലെ ആചാരവും അനുഷ്ഠാ നങ്ങളും സംരക്ഷിക്കാൻ കേന്ദ്ര ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യം ഉന്നയിക്കുമെന്നും ശ്രീധരൻ പിള്ള പ്രസ്താവനയിൽ അറിയിച്ചു കേന്ദ്ര ഗവൺമെന്റ് അയ്യപ്പ ഭക്തർക്ക് അനുകൂലമായ നടപടി യെടുക്കാത്ത സാഹചരൃത്തിൽ ബിജെപിക്ക് വേണ്ടി പ്രചാരണ രംഗ ത്തിറങ്ങില്ലെന്ന് പന്തളം കൊട്ടാരം കുടുംബാംഗം ശശികുമാർ വർമ്മ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തെ എൻഡിഎ ഭരണം ഇന്തൃയുടെ പാര മ്പരൃം കളഞ്ഞുകുളിച്ചെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി കുറ്റപ്പെടുത്തി കാസർകോട് ചെർക്കളയിൽ യുഡി എഫ് തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുയായിരുന്നു അദ്ദേഹം

രാവിലെ ധർമ്മഠത്ത് നിന്ന് ആരംഭിക്കുന്ന പ്രചാരണം വൈകീട്ട് കക്കാട് സമാപിക്കും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻഡിഎ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ബിജെപി ദേശീയ സെക്രട്ടറി വൈ സത്യകുമാർ കണ്ണൂരിൽ പറഞ്ഞു ഇടത് വല്ത് മുന്നണികളെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പാഠം പഠിപ്പിക്കുമെന്നും അദ്ദേഹം അഭി പ്രായപ്പെട്ടു കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സത്യകുമാർ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കാര്യത്തിൽ അവ്യ ക്തത തുടരുകയാണ്

കേരളമൊഴികെ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് മാത്രം തീരുമാ നമെടുത്ത് തെരഞ്ഞെടുപ്പ് സമിതി യോഗം പിരിയുകയായിരുന്നു മുതിർന്ന നേതാവ് എ

ആൻ്റണിയും എഐസിസി ജനറൽ സെക്ര ട്ടറി കെ

വേണുഗോപാലും യോഗത്തിൽ പങ്കെടുത്തിരുന്നെങ്കിലും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ചർച്ചയായില്ലെന്നാണ് ഡൽഹി റിപ്പോർട്ടുകൾ രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നതിനെതിരെ യുപിഎ സഖ്യക ക്ഷികളിൽ നിന്ന് പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ അദ്ദേഹം വയനാട്ടിൽ മത്സരിച്ചേക്കില്ല എന്ന അഭ്യൂഹം ശക്തമാണ് ഇന്ത്യ ഉപഗ്രഹവേധ മിസൈൽ സംവിധാനം പരീക്ഷിച്ചതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത നട പടിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച അന്വേഷണ സമിതി ഇന്ന് റിപ്പോർട്ട് നൽകിയേക്കും പെരുമാറ്റച്ചട്ട ലംഘനം ഉണ്ടായോ എന്ന കാര്യം ഇതിന് ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുന്നത്

സാമൂഹ്യ മാധ്യമത്തിൽ ചട്ടം ലംഘിച്ച് പോസ്റ്റ് ഷെയർ ചെയ്ത തപാൽ വകുപ്പ് ജീവനക്കാരനെതിരെ സി വിജിലിന് ലഭിച്ച പരാതിയിൽ അച്ചടക്ക സമിതി നടപടിയെടുത്തു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ വേതനം പുതുക്കാൻ ഗ്രാമ വികസന മന്ത്രാലയത്തിന് തെരഞ്ഞെ ടുപ്പ് കമ്മീഷൻ അനുമതി നൽകി

എന്നാൽ വേതന പരിഷ്ക്കരണം ഗവൺമെന്റ് പ്രചരിപ്പിക്കാൻ പാടില്ലെന്ന് കമ്മീഷൻ നിർദേശം നൽകി മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ വേതന വർദ്ധന നടപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടി മന്ത്രാലയം അപേക്ഷ നൽകിയിരുന്നു

സംസ്ഥാന ലോകായുക്തയായി ജസ്റ്റിസ് സിറിയക്ക് ജോസഫ് സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു രാജ്ഭവനിൽ ഗവർണർ പി സ ദാശിവം അദ്ദേഹത്തിന് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മുഖ്യമന്ത്രി യും പ്രതിപക്ഷ നേതാവും മറ്റ് പ്രമുഖ നേതാക്കളും ചടങ്ങിൽ പങ്കെ ടുത്തു സംസ്ഥാനത്ത് ഇന്നും നാളെയും സൂര്യാഘാത സൂര്യാതപ സാധ്യത നിലനിൽക്കുന്നതിനാൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി ഇന്ന് ഇടുക്കി വയ നാട് ജില്ലകളിലൊഴികെ എല്ലായിടത്തും പകൽ താപനില രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ട് ഉയർന്ന അൾട്രാ വയ ലറ്റ് വികിരണം വരും ദിവസങ്ങളിലും തുടരും ഏപ്രിലിലെ ആദ്യ ദിവസങ്ങളിലും ചൂട് ശരാശരിയിലും കൂടാനാണ് സാധൃതയെന്ന് വിലയിരുത്തപ്പെടുന്നു

കൊടും ചൂട് കണക്കിലെടുത്ത് ആലപ്പുഴ ജില്ലയിൽ അടുത്ത മാസം ആറ് വരെ അങ്കൻവാടികൾക്ക് അവധി നൽകി

ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ഇന്നലെ ആദ്യ ജയം നേടി ചെന്നൈ ചിന്നസ്വാമി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ റോയൽ ചല ഞ്ചേഴ്സ് ബംഗ്ലൂരിനെ ആറ് റൺസിനാണ് അവർ തോൽപ്പിച്ചത് ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരി ടും

അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് പ്രസിദ്ധമായ നാടകശാല സദ്യ ഇന്ന് നടക്കും

സദ്യ പൂർത്തിയായ ശേഷം വഞ്ചിപ്പാട്ട് സംഘം നൃത്തച്ചുവടുകളോടെ പുത്തൻകുളം കരയിലേക്ക് നീങ്ങും മടങ്ങി യെത്തുന്ന സംഘത്തെ പടിഞ്ഞാറെ ആൽച്ചുവട്ടിൽ പൊലീസ് അധി കാരികൾ പണക്കിഴിയും വാഴക്കൂലയും നൽകി സ്വീകരിക്കും

ഉത്സവത്തിന് സമാപനം കുറിക്കുന്ന ആറാട്ടുദിന ചടങ്ങു കൾ രാവിലെ മുതൽ തുടങ്ങും തൊടുപുഴ കുമാരമംഗലത്ത് രണ്ടാനച്ഛന്റെ മർദ്ദനമേറ്റ ഏഴുവ യസുകാരനെ അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തലയോട്ടിക്ക് ഗുരുതര പരിക്കേറ്റ ബാലനെ കോലഞ്ചേരി മെഡിക്കൽ കോളജിൽ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കി ഇന്നലെ പുലർച്ചെയാണ് രണ്ട് കുട്ടികളെ രണ്ടാനച്ഛൻ ക്രൂരമായി മർദ്ദിച്ചത് മൂന്നര വയസ്സുകാരനായ ഇളയാകുട്ടിയുടെ മൊഴിയിൽ പൊലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പെരിയ കല്ല്യോട്ടെ ഇരട്ടക്കൊലയുടെ അന്വേഷണം സിബിഐ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് നാളെ കാസർകോട് പെരിയയിൽ അമ്മ മാരുടെ പ്രാർത്ഥനാ സംഗമം നടക്കും മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ലതികാ സുഭാഷ് ഉൾപ്പെടെ നേതാക്കൾ സംഗ മത്തിൽ സംബന്ധിക്കും പ്രളയ ദുരിതാശ്ചാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ദക്ഷിണ നാവിക കമാന്റ് ചെറിയ കടമക്കുടിയിൽ നിർമ്മിച്ച മൂന്ന് വീടുക ളുടെ താക്കോൽ ദക്ഷിണ നാവിക കമാന്റ് മേധാവി വൈസ് അഡ്മി റൽ അനിൽ കുമാർ ചൌള കൈമാറി

ഇതോടെ ചെറിയ കടമക്കുടി സമ്പൂർണ്ണ ഹരിത ഗ്രാമമായി മാറുമെന്ന് വൈസ് അഡ്മിറൽ പറഞ്ഞു ഓച്ചിറയിൽ നിന്ന് രാജസ്ഥാനി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതിയായ മുഹമ്മദ് റോഷനെ ഇന്ന് കൊല്ലത്ത് കോടതി യിൽ ഹാജരാക്കും ഇന്നലെ റോഷനേയും പെൺകുട്ടിയേയും മുംബൈയിൽ നിന്ന് കൊല്ലത്ത് എത്തിച്ചിരുന്നു

അന്വേഷണ സംഘം പ്രതിയെ ചോദ്യം ചെയ്തുവരികയാണ് കേസിൽ മൂന്ന് പേർ നേരത്തെ പിടിയിലായിരുന്നു

ഈ വർഷം സൊസൈറ്റി ആരംഭിച്ച രശ്മി സത്യജിത്റേ സമഗ്ര സംഭാവന പുരസ്കാരം ഇന്ദ്രൻസിന് ചടങ്ങിൽ മലയാള സർവകലാശാലാ വൈസ് ചാൻസലർ ഡോ അനിൽ വള്ള ത്തോൾ സമ്മാനിക്കും ശബരിമല ആചാര സംരക്ഷണ പ്രക്ഷോഭ് നേതാവ് കെ

പ്ര കാശ് ബാബുവിനെ ഗവൺമെന്റ് കള്ളക്കേസിൽ കുടുക്കിയെന്നാ രോപിച്ച് കോഴിക്കോട്ട് ശബരിമല കർമ്മസമിതി ഐക്യദാർഢ്യ ദിനം ആചരിക്കും